ചന്ദ്രശേഖരൻ ഉത്തരവിട്ടു

ഇന്ന് ദുർഗ്ഗാഷ്ടമി

മന്ത്രി എ കെ ശശീന്ദ്രനും എം പിമാരായ കെ

എം നേതാവ് ടി എൻ സീമ കേരള കോൺഗ്രസ് നേതാവ് പി

ജോസഫ് തുടങ്ങിയവരും സമ്മേളനത്തിൽ പങ്കെടുക്കും സമരം ആരംഭിച്ചത് മുതൽ ഐക്യ ദാർഢ്യവുമായി എത്തിയവരെ മഹാ സമ്മേളനത്തിൽ പങ്കെടുപ്പിക്കുമെന്ന് ആക്ഷൻ കമ്മിറ്റി അറിയിച്ചു എല്ലാവരും ബത്തേരിയിലേക്ക് എല്ലാ വഴികളും ബത്തേരിയിലേക്ക് എന്ന മുദ്രാവാക്യത്തോടെയാണ് സമ്മേളനം നടക്കുന്നത്

കുന്നത്തുനാട്ടിലെ വിവാദഭൂമി ഡാറ്റാബാങ്കിൽ ഉൾപ്പെടുത്താൻ മന്ത്രി ഇ ചന്ദ്ര ശേഖരൻ ഉത്തരവിട്ടു റിമോട്ട് സെൻസിംഗ് സെന്ററിന്റെ റിപ്പോർട്ടിൽ ഭൂമി നിലമാ ണെന്ന് വൃക്തമായതിനെ തുടർന്നാണ് മന്ത്രിയുടെ ഉത്തരവ് തുടർ നടപടിയ്ക്ക് ജില്ലാ കലക്ടറെ ചുമതലപ്പെടുത്താൻ മന്ത്രി റവന്യൂ അഡീഷണൽ ചീഫ് സെക്രട്ടറിക്ക് നിർദ്ദേശം നൽകി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഹൈക്കോ ട തിയിൽ എതിർസ ത്യ വാങ്മൂലം നൽകു ന്ന തിനുള്ള നട പടികൾ സ്വീകരിക്കാനും മന്ത്രി നിർദ്ദേശിച്ചു

കോഴിക്കോട് കൂടത്തായിയിൽ റോയ് തോമസ് സയനൈഡ് ഉള്ളിൽ ചെന്ന് മരിക്കാനിടയായ സംഭവത്തിൽ അന്വേഷണം പുരോഗമിക്കുന്നു കൂടത്തായിയിലെ പൊന്നമറ്റം വീട് ഇന്ന് പോലീസ് പൂട്ടി സീൽ ചെയ്തു സംഭവത്തിൽ കൂടുതൽ പേരിലേക്ക് അന്വേഷണം വ്യാപിപ്പിക്കാനാണ് അന്വേഷണസംഘ ത്തിന്റെ നീക്കം മറ്റ് അഞ്ച് പേരുടെ മരണം സംബന്ധിച്ച ഫോറൻസീക് പരിശോധന ഫലം പെട്ടെന്ന് ലഭ്യമാക്കാനുള്ള നടപടികളും സ്വീകരിച്ചിട്ടുണ്ട് ഇന്നലെ അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്ത മൂന്ന് പേരെ റിമാൻഡ് ചെയ്തു കേസിലെ നിർണായക കണ്ണി ജോളി സയനൈഡ് എത്തിച്ച് നല്കാൻ സഹായിച്ച മാത്യു പ്രജുകുമാർ എന്നിവരെയാണ് ഇന്നലെ രാത്രി താമരശ്ശേരി ജുഡീഷ്യൽ ഫസ്റ്റ് ക്സാസ് മജിസ് റിമാൻഡ് ചെയ്തത് കോടതിയിൽ ഹാജരാക്കുന്നതിന് മുന്നോടിയായി ട്രേറ്റ് താമരശ്ശേരിയിൽ തെളിവെടുപ്പും നടത്തിയിരുന്നു കോഴിക്കോട് ജില്ലാജയിലിൽ റിമാൻഡിൽ കഴിയുന്ന ജോളിയുടെ പെരുമാറ്റങ്ങളും നിരീക്ഷിക്കുന്നുണ്ട് അതിനിടെ പ്രതികളെ കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ട് പൊലീസ് നൽകിയ അപേക്ഷ കോടതി ബുധനാഴ്ച പരിഗണിക്കും തൃശൂർ പാവറട്ടിയിൽ കഞ്ചാവുമായി പിടികൂടിയ പ്രതി എക്സൈസ് കസ്റ്റഡിയിൽ മർണപ്പെട്ട കേസിൽ ആരോപണവിധേയരായ ഉദ്യോഗസ്ഥർ ചോദ്യം ചെയ്യലിന് ഹാജരായില്ല അന്വേഷണ ഉദ്യോഗസ്ഥനായ ഗുരുവായൂർ എ സി

ബിജു ഭാസ്കറിന്റെ മുൻപാകെ ഹാജരാവാൻ എട്ട് എക്സൈസ് ഉദ്യോഗസ്ഥർക്ക് നോട്ടീസ് നൽകിയിട്ടും ഉദ്യോഗസ്ഥർ പ്രതികരിച്ചില്ലെന്ന് പൊലീസ് അറിയിച്ചു എട്ടു പേരെയും കഴിഞ്ഞ ദിവസം സർവ്വീസിൽനിന്ന് സസ്പെൻഡ് ചെയ്തിരുന്നു

ഇത്തവണ റഷ്യ ആയിരിക്കും ചലചിത്രോത്സവത്തിലെ പങ്കാളിത്തരാജ്യമെന്ന് കേന്ദ്രമന്ത്രി പ്രകാശ് ജാവ്ദേക്കർ ന്യൂഡൽഹിയിൽ അറിയിച്ചു

ദാദാസാഹിബ് ഫാൽക്കേ അവാർഡ് നേടിയ സൂപ്പർസ്റ്റാർ അമിതാഭ് ബച്ചന്റെ എട്ടോളം സിനിമകൾ മേളയിൽ പ്രദർശിപ്പി ക്കുമെന്നും ജാവ്ദേക്കർ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു

തൊഴിലിടങ്ങളിലും ക്ഷേത്രങ്ങളിലും വീടുകളിലും പുസ്ത കങ്ങളും ആയുധങ്ങളും പൂജയ്ക്ക് വെച്ചു നാളെ മഹാനവമിയ്ക്കുശേഷം വിജയദശമി ദിനമായ ചൊവ്വാഴ്ച വിദ്യാരംഭ ചടങ്ങുകൾ ആരംഭിക്കും ക്ഷേത്ര ങ്ങളിലും സാംസ്കാരിക സ്ഥാപനങ്ങളിലും എഴുത്തിനിരുത്ത് രാവിലെ ആരംഭി ക്കും കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിലും കോട്ടയം പനച്ചിക്കാട് തൃശൂർ തിരു വുള്ളക്കാവ് ക്ഷേത്രങ്ങളിലും സരസ്വതി സാന്നിധ്യം കൽപ്പിക്കുന്ന ക്ഷേത്രങ്ങ ളിലും എഴുത്തിനിരുത്തിന് ഒരുക്കങ്ങൾ പൂർത്തിയായിക്കഴിഞ്ഞു രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് ജനങ്ങൾക്ക് ദുർഗ്ഗാഷ്ടമി ആശംസകൾ നേർന്നു സത്യവും നീതിയും അന്തിമമായി വിജയിക്കുമെന്ന സന്ദേശമാണ് ദുർഗ്ഗാപൂജ സമൂ ഹത്തിന് നൽകുന്നതെന്ന് രാഷ്ട്രപതി ആശംസാസന്ദേശത്തിൽ പറഞ്ഞു മരടിലെ അനധികൃത ഫ്ളാറ്റുകൾ പൊളിക്കുന്നതിന്റെ തുടർ നടപടികൾ ചർച്ച ചെയ്യാൻ കൊച്ചിയിൽ ചീഫ് സെക്രട്ടറിയുടെ അധൃക്ഷതയിൽ അൽപസമയത്തിന കം യോഗം ചേരും ഫ്ളാറ്റുകൾ പൊളിക്കുന്ന സമയത്ത് സമീപവാസികളെ ഒഴിപ്പി ക്കുന്നതടക്കം കാര്യങ്ങൾ യോഗത്തിൽ ചർച്ച ചെയ്യും ജില്ലാകലക്ടർ പൊളിക്ക ലിന്റെ ചുമതലയുള്ള സബ്കലക്ടർ എന്നിവർ പങ്കെടുക്കും

പ്രവാസി ഇന്ത്യക്കാരുടെ അനന്തര തലമുറയ്ക്ക് മാതൃ രാജ്യവുമായി ബന്ധം നിലനിർത്താനും അടുത്തറിയാനും വിവിധ മേഖലകളിലെ പുരോഗതി നേരിട്ട് അറിയാനും വേണ്ടിയാണ് പരിപാടി സംഘടിപ്പിക്കുന്നത് ഇതിൽ പങ്കെടുക്കുന്ന വിദേശ രാജ്യങ്ങളിലെ വിദ്യാർത്ഥികൾക്കും ്യുവ പ്രൊഫഷണലുകൾക്കും ഗവർണർ മുഖ്യമന്ത്രി ചീഫ് സെക്രട്ടറി ആസൂത്രണബോർഡ് അംഗങ്ങൾ വിശിഷ്ട വ്യക്തികൾ തുടങ്ങിയവരെ ്കാണാൻ അവസരമൊരുക്കും പൈതൃക ചരിത്ര സ്മാരകങ്ങളും തൊഴിലിടങ്ങളും സംഘം സന്ദർശിക്കും

യാക്കോബായ സഭയുടെ നേതൃത്വത്തിൽ ഇന്ന് കോതമംഗലത്ത് രണ്ടാം കൂനൻകുരിശ് സത്യം നടത്തും വൈകിട്ട് മൂന്നിന് മാർത്തോമാ ചെറിയ പള്ളിക്ക് മുമ്പിലെ കൽക്കുരിശിന് മുന്നിലാണ് വിശ്വാസികളുടെ പ്രതിജ്ഞ

മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർക്കാണ് റിപ്പോർട്ട് നൽകുക പെരുമാറ്റചട്ട ലംഘനം നടത്തിയ മന്ത്രി ജി സുധാകരനെതിരെ നടപടി വേണമെന്നാവശ്യപ്പെട്ട് യു ഡി എഫ് നൽകിയ പരാതിയിലാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ടിക്കാറാം മീണ റിപ്പോർട്ട് തേടിയത് അന്വേഷണം നടക്കുകയാണെന്നും ഉച്ചയോടെ റിപ്പോർട്ട് നൽകുമെന്നും വരണാധികാരി കൂടിയായ ജില്ലാ കലക്ടർ അദീല അബ്ദുല്ല പറഞ്ഞു ബിജെപി നേതാവ് കുമ്മനം രാജശേഖരനെതിരെ നടത്തിയ കുമ്മനടി പ്രയോഗം വിഷമിപ്പിച്ചെങ്കിൽ അദ്ദേഹത്തോട് ക്ഷമ ചോദിക്കുന്നതായി മന്ത്രി കടകംപള്ളി സുരേ ന്ദ്രൻ പറഞ്ഞു തനിക്കെതിരായ കുമ്മനത്തിന്റെ ആരോപണം ജനങ്ങളും കോടതി യും നേരത്തെ തളളിക്കളിഞ്ഞ താണ് പ്രളിയകാലത്ത് കുമ്മനവും കെ മുരളീധരനും എവിടെയായിരുന്നുവെന്നും കടകംപള്ളി തിരുവനന്തപുരത്ത് ചോദി ച്ചും ദക്ഷിണാഫ്രിക്കയ്ക്ക് എതിരായ ആദ്യക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യ വിജയത്തിലേ ക്ക്

ജഡേജ നാലും ഷമി മൂന്നും വിക്കറ്റുകൾ വീഴ്ത്തി

ലോക ഷട്ടിൽ ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പ് ജേതാവ് ഒളിംപ്യൻ പി വി സിന്ധു വിനെ കായിക യുവജനകാര്യ വകുപ്പും കേരള ഒളിംപിക് അസോസിയേഷനും ബുധനാഴ്ച തിരുവനന്തപുരത്ത് ആദരിക്കും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉച്ച കഴിഞ്ഞ് ജിമ്മി ജോർജ്ജ് സ്റ്റേഡിയത്തിൽ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യും സംസ്ഥാന ബീച്ച് ഗെയിംസ് തീം സോംഗ് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ പ്രകാ ശനം ചെയ്യും മന്ത്രി ഇ പി ജയരാജന് പുറമെ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും പരിപാടിയിൽ പങ്കെടുക്കും ദോഹ ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് ഇന്ന് സമാപിക്കും

ഏഴിനങ്ങളിലാണ് ഇന്ന് ഫൈനൽ രാജ്യത്തെ മികച്ച എംഎൽഎയ്ക്കുള്ള അവാർഡ് തനിക്ക് ലഭിച്ചതായി സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന വാർത്ത ശരിയല്ലെന്ന് ഷാഫി പറമ്പിൽ എം

എ അറിയിച്ചു

കൊല്ലം പാരിപ്പള്ളിയിൽ അമ്മയുടെ മർദനമേറ്റ നാല് വയസുകാരി മരിച്ചു വർക്കല ചാവടിമുക്ക് സ്വദേശിനി ദിയയാണ് മരിച്ചത് മർദ്ദനത്തിൽ ഗുരുതര പരിക്കേറ്റ കുട്ടിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും നില വഷളാവുക യായിരുന്നു

തലശ്ശേരിക്കടുത്ത് പുന്നോൽ കുറിച്ചിയിൽ കാറിടിച്ച് കാൽ നടയാത്രികൻ മരിച്ചു തൽശ്ശേരി ഗോപാലപേട്ട സ്വദേശി മത്സ്യത്തൊഴിലാളി രാജനാണ് മരിച്ചത് സംസ്ഥാനത്ത് എം

എസ് പരീക്ഷാ ഹാളുകളിൽ വാച്ചും വെള്ളക്കുപ്പിയും ഉപയോഗി ക്കുന്നതിന് വിലക്ക് ഏർപ്പെടുത്തി ആറ് മെഡിക്കൽ കോളേജുകളിൽ കോപ്പിയടി കണ്ടെത്തിയതിനെ തുടർന്നാണ് ആരോഗ്യ സർവകലാശാലയുടെ ഉത്തരവ് പാലക്കാട് ജില്ലയിൽ പരമ്പരാഗതമായി ആനകളെ എഴുന്നള്ളിക്കുന്ന ഉത്സവ കമ്മിറ്റിക്കാർ അതത് മാസം അഞ്ചിനകം കലക്ടറേറ്റിലോ ഒലവക്കോട് സോഷ്യൽ ഫോറസ്ട്രി ഓഫീസിലോ അനുമതിക്ക് അപേക്ഷിക്കുണമെന്ന് ജില്ലാ കലക്ടർ ഡി ബാലമുരളി ആവശ്യപ്പെട്ടു ആനകളെ ഉപയോഗിക്കുന്ന പുതിയ പരിപാടികൾക്ക് അനുമതി നൽകില്ലെന്നും നാട്ടാന പരിപാലന ചട്ടം പ്രകാരം രജിസ്റ്റർ ചെയ്യാത്തതും മോണിറ്ററിങ് കമ്മിറ്റിയുടെ അനുമതി അളല്ലാത്തതുമായ ആനകളെ എഴുന്നള്ളിക്കുന്നവർക്കെതിരെ കർശന നടപടിയെടുക്കു മെന്നും ജില്ലാ കലക്ടർ പറഞ്ഞു ഗോത്രവർഗ്ഗക്കാരുടെ നീതി ഉറപ്പുവരുത്തണമെന്നും അവകാശങ്ങൾ സംരക്ഷി ക്കപ്പെടണമെന്നും ഹൈക്കോടതി ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ് സി

അബ്ദുൾ റഹീം പറഞ്ഞു ഇടുക്കി മറയൂർ കോവിൽകടവ് ജയമാതാ സ്കൂളിൽ ഗോത്രവർഗുപാർല മെന്റ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ഇന്ത്യയുടെ നീതിന്യായ സംവിധാനം കോടതി ചുമരു ക ളിൽനിന്ന് സാധാരണ ക്കാരനിലേക്ക് നേരിട്ട് എത്തുന്ന കാലഘട്ടമാണിതെന്നും അദ്ദേഹം അഭിപ്രായപ്പെ ട്ടു മാഹി റെയിൽവേസ്റ്റേഷനുസമീപം പൊലീസ് എയ്ഡ് പോസ്റ്റ് സ്ഥാപിച്ചു വട കര റൂറൽ എസ്

പഞ്ചായത്ത് നിർമ്മി ച്ചുനൽകിയ കെട്ടിടത്തിലാണ് എയ്ഡ്പോസ്റ്റ് ആരംഭിച്ചത് കോഴിക്കോട് ജില്ലയിലെ എടച്ചേരി പഞ്ചായത്തിൽ ക്ഷീരവികസന വകുപ്പിന്റെ ക്ഷീരഗ്രാമംപദ്ധതിയ്ക്ക് നടപ്പാക്കുന്നു

അവിശ്യാധിഷ്ഠിത ധനസഹായപ ദ്ധതി കറവയന്ത്രം വാങ്ങുന്നതിന് ധനസഹായം മിനറൽ മിക്സ്ച്ചർ വിതരണ പദ്ധ തി എന്നിവയ്ക്കാണ് ഫണ്ട് അനുവദിച്ചത് കേരള സാഹിത്യ അക്കാദമിയുടെ വി

വി ശരത്ചന്ദ്രന്റെ വിതയ്ക്കുന്നവന്റെ ഉപമ എന്ന രണ്ട് പ്രക്ഷേപണ നാടകങ്ങ ളുടെ സമാഹരണത്തിനാണ് അവാർഡ് ലഭിച്ചത് അക്കാദമി വൈസ് പ്രസിഡന്റ് ഡോ ഖദീജ മുംതാസ് പുരസ്കാരം സമ്മാനിക്കും